ബില്ലും രാജ്യസഭ പാസ്സാക്കി കോവിഡ് പ്രതിസന്ധിയിൽ വ്യാപാര സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് പാപ്പരത്വ നിയമ ഭേദഗതിയെന്ന് കേന്ദ്ര ധനമന്ത്രി

ജാഗ്രതാ പാലിക്കാൻ നിർദേശം

കൃത്യനിർവ്വഹണത്തിനിടെ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കു്ന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണെന്ന് നിയമന ഭേദഗതിയിൽ അനുശാസിക്കുന്നു

ബില്ലിൻമേൽ നടന്ന ചർച്ചകൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ

രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണം വർധിച്ചുവരുന്നത് കണക്കിലെടുത്താണ് ഓർഡിനൻസ് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

സി പിയിലെ വന്ദന ചവാൻ പറഞ്ഞു ശിവസേന കോൺഗ്രസ് ടിഎംസി സമാജ്വാദി പാർട്ടി ആർ

ഡി ബിഎസ്പി വൈ എസ് ആർ ടി ഡി

തുടങ്ങിയ കക്ഷികളിലെ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു

കഴിഞ്ഞ മിർച്ച് ്മുതൽ ആറ് മാസക്കാലയളവിൽ വായ്പാ തിരിച്ചടവ് മുട്ങ്ങിയ കാരണത്താൽ പാപ്പരത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ ഈ ബിൽ നിയമമാകുന്നതോടെ സാധിക്കില്ല

കഴിഞ്ഞവർഷം കൊണ്ടുവന്ന മൂന്ന് നിയമങ്ങൾ പിൻവലിച്ചു കൊണ്ടാണ് ഇന്ന് പുതിയ ബില്ലുകൾ അവതരിപ്പിച്ചത്

തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഇരുപതോളം കൺട്രോൾ റൂമുകളിലൂടെ ആനൃസംസ്ഥാന തൊഴിലാളികളുടെ പതിനയ്യായിരത്തോളം പരാതികൾക്ക് പരിഹാരം കണ്ടെത്തിയതായി കേന്ദ്രമന്ത്രി സന്തോഷ് ക്കുമാർ ഗാങാർ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിലൂടെ അറിയിച്ചു

രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി ശ്രീപദ് യശോ നായിക്കാണ് ഇക്കാര്യമറിയിച്ചത്

രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

കോവിഡ് രോഗമുക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയെ മറികടന്ന് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ഇതിന്റെ ഭാഗമായി ഇടുക്കി കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്നും ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർകോഡ് നാളെയും റെഡ് അലെർട്ട് പ്രഖ്യാപിച്ചു

ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദം രൂപപ്പെടുന്നതിനാൽ കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്നും വിവിധയിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിക്കാൻ സാധൃതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു

അബുദാബിയിലെ ്ഷെയ്ഖ് സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാട്ട്ന മത്സരത്തിൽ രോഹിത് ശർമ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസും ധോണിയുടെ നേതൃത്വത്തിലുള്ള ചെന്നൈ സൂപ്പർ കിങ്ങ്സും തമ്മിലാണ് പോരാട്ടം

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഐപിഎൽ മത്സരങ്ങൾ യു എ

ഇത്തവണത്തെ ഐപിഎൽ മത്സരങ്ങൾ ആരാധകർക്ക് ടെലിവിഷനിലൂടെ ആസ്വദിക്കാനേ കഴിയൂ

സംസാരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരു മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള വലിയ കണങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ഇത് മാസ്ക്കിലൂടെ ചെറിയ കണങ്ങൾ ആയി പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നുമാണ് മുൻപ് പഠനങ്ങൾ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ തുണി മാസ്കുകൾ താരതമ്യേന സുരക്ഷിതമാണെന്നും മാസ്ക്കുകൾ കണങ്ങളെ തടയുക മാത്രമല്ല ശ്വസിക്കാൻ സൌകര്യപ്രദവും ആയിരിക്കേണ്ടതാണെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു